സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ മാണിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമുൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു

എം മാണിയുടെ സംസ്കാരം നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും

തുടർന്ന് വിലാ പയാത്രയായി സ്വദേശമായ മരങ്ങാട്ടുപള്ളിയിൽ എത്തിക്കും അവിടെ നിന്ന് പാലാ മുനിസിപ്പൽ ടൌൺഹാളിൽ നാലര വരെ പൊതുദർശനത്തിന് സൌകര്യമൊരുക്കും വൈകീട്ട് ആറോടെ പാലായില്ലെ വീട്ടിലെത്തിക്കും നാളെ ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് പാലാ കരിങ്ങോഴയ്ക്കൽ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും

അദ്ദേഹത്തിന്റെ മരണ വിവരം അറിഞ്ഞയുടൻ പ്രമുഖ നേതാക്കൾ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു

ആഭ്യന്തരം റവന്യൂ വൈദ്യുതി നിയമം ജലസേചനം തുടങ്ങിയ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി കർഷക തൊഴിലാളി പെൻഷൻ കർഷക പെൻഷൻ തുടങ്ങി ഒട്ടനവധി ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറി ച്ചത് കെ എം മാണിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻസിങ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തുടങ്ങി പ്രമുഖ നേതാക്കൾ കെ എം മാണിയുടെ നിര്യാ ണത്തിൽ അനുശോചിച്ചു കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു മാണിയെന്ന് പ്രധാന മന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മാണിയുടെ തുടർച്ചയായ വിജയം സംസ്ഥാനത്തെ ജനങ്ങളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മ ബന്ധമാണ് തെളിയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ടി കമ്മിറ്റിയുടെ ഭാഗമായി മാണിയുമായി താൻ നടത്തിയ സംവാദങ്ങൾ ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നുവെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ്മുഖർജി പറഞ്ഞു രാജ്യത്തിന് പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടപ്പെട്ട തെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യ മുണ്ടായിരുന്നുവെന്നും ഡോ മൻമോഹൻസിങ് അനുസ്മരിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും യു

എ ചെയർപേ ഴ്സൺ സോണിയാഗാന്ധിയും കെ എം മാണിയുടെ മകനും രാജ്യസഭാം ഗവുമായ ജോസ് കെ മാണിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറി യിച്ചു മാണിയുടെ മർണം കേരള കോൺഗ്രസ്സിനെയും യു

എഫിനെയും സംബന്ധിച്ചിടത്തോളം തീരാനഷ്ടമെന്ന് കോൺഗ്രസ്സ് പ്രവർത്തക സമി തി അംഗം എ

ആന്റണി പറഞ്ഞു

എം മാണിയുടെ വിയോഗത്തിലൂടെ ജനാധിപത്യ കേരളത്തിനും യു

എഫിനും മുസ്ലിം ലീഗിനും കേരളാകോൺഗ്രസ്സിനുമെല്ലാം നിക ത്താനാവാത്ത നഷ്ടമാണ് സംഭവിച്ചതെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന പ്ര സിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് പറഞ്ഞു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നട ത്തിയ റെയ്ഡ് സംബന്ധിച്ച വിശദാംശം ഇന്ന് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയു മായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായും റവന്യു സെക്രട്ടറി എ ബി പാണ്ഡയും സി

ടി ചെയർമാൻ പി സി മ്പോദിയും ന്യൂഡൽഹി യിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർദേശം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്രം പറയുന്ന സിനിമയ്ക്ക് സർടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് നടപടികൾ ഏതുവരെ ആയി യെന്ന് അറിയിക്കാൻ കേന്ദ്ര ഫിലിം സർടിഫിക്കേഷൻ ബോർഡിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു സിനിമ റിലീസ് ചെയ്യുന്നത് തട യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രിംകോടതി തള്ളിയതിനെ തുടർന്നാണ് ഈ ആവശ്യം ഉന്നയിച്ച് കമ്മീഷൻ ബോർഡിന് കത്തയച്ച ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കോഴിക്കോട്ടെത്തും വൈകിട്ട് നാലിന് കടപ്പുറത്ത് നടക്കുന്ന എൻ

എ വിജയ് സങ്കൽപ്പ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും മലപ്പുറം കോഴി ക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുക്കുക കർശന സുരക്ഷാ പരിശോധനയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി നഗരത്തിൽ ഏർപ്പെടുത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അമേഠി ലോക്സഭാ മണ്ഡ ലത്തിൽ ഇന്ന് നാമനിർദേശ പത്രിക സമർപ്പിക്കും റോഡ് ഷോ നടത്തി യായിരിക്കും പത്രികാ സമർപ്പണം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാ രണം അവസാനിച്ചു

രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യു

ഗവൺമെന്റ് അധി കാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഒരു കർഷകനും ആത്മഹത്യ ചെയ്യേ ണ്ടി വരില്ലന്നും ഒരു കർഷകനും ജയിലിൽ പോകേണ്ടി വരില്ലന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

വയനാട്ടിലെ തലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം രാഹുൽ അധികാരത്തിൽ വന്നാൽ ആദ്യം ഒപ്പിടു ന്നത് കർഷകരുടെ കടം എഴുതിതള്ളുന്ന ഫയൽ ആയിരിക്കുമെന്നും ആന്റ ണി പറഞ്ഞു സർവേ ഫലങ്ങൾകൊണ്ട് ജനവിധി അട്ടിമറിക്കാനാവില്ലെന്ന് സിപി ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴ യിൽ പറഞ്ഞു കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാൽ മാത്രമേ ബി

പി ഇതര ഗവൺമെന്റുണ്ടാക്കാനാവൂ എന്ന എ കെ ആന്റണിയുടെ വാദം അടിസ്ഥാന രഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു മസാല ബോണ്ട് വരുന്നതിനെയല്ല മസാല ബോണ്ട് വാങ്ങുന്നതിന് ഇ പ്പോൾ ഏർപ്പെടുത്തിയ ഏജൻസിയെയാണ് പ്രതിപക്ഷം എതിർക്കുന്നതെ ന്ന് എ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു ഏഷ്യൻ ഡെവല്പമെന്റ് ബാങ്കിൽ നിന്നും ലോകബാങ്കിൽ നിന്നും സഹായം സ്വീ കരിക്കുന്നതിനെ എതിർത്ത് സംസ്ഥാനത്തിന്റെ വികസനത്തെ പിറകോട്ട് വലിച്ച സി

എമ്മിന് ഇപ്പോൾ നിലപാട് മാറിയതെങ്ങനെയെന്നും സി

എമ്മിന്റെ വികസന വിരുദ്ധത കാരണം ഉണ്ടായ പത്ത് വർഷ ത്തെ നഷ്ടം എങ്ങനെ നികത്തുമെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു പ്രധാനമന്ത്രി കർഷക ആത്മഹത്യയും രൂപയുടെ മൂല്യം ഇടിയുന്നതും അറിയുന്നില്ലെന്ന് സി

എം കേന്ദ്ര കമ്മിറ്റി അംഗം വി

പത്തനംതിട്ട തിരുവല്ലയിൽ എൽ

എഫിന്റെ പ്രചാ രണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ് ് ് ് സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴി ക്കോട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ സമ ഗ്ര അന്വേഷണം നടത്തണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി

പ്രധാനമന്ത്രി കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം റഫാൽ പുനപരിശോധനാ ഹർജി അനുവദിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രം ഉന്നയിച്ച പ്രാഥമിക തടസ്സങ്ങളിൽ സുപ്രിം കോടതി ഇന്ന് വിധി പറയും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രഖ്യാപനം നടത്തുക

ലുധിയാനയിൽ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്നലെ പഞ്ചാബ് മറു പടിയില്ലാത്ത രണ്ട് ഗോളിന് അസമിനെ തോൽപ്പിച്ചു മറ്റൊരു കളി യിൽ രണ്ട് ഗോൾ വീതം നേടി മഹാരാഷ്ട്രയും കർണാടകയും സമനില യിൽ പിരിഞ്ഞു ഇന്ന് മേഘാലയ ഒഡീഷയെയും ഡൽഹി സർവീസ സിനെയും നേരിടും ചെന്നൈയിൽ ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ഒന്നാം സ്ഥാനത്തെത്തി ഇന്ന് മുംബൈ ഇന്ത്യൻസ് കിങ്സ് ഇലവൻ പഞ്ചാ ബിനെ നേരിടും മേടമാസ വിഷു ഉത്സവ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകീട്ട് തുറക്കും നാളെ പുലർച്ചെ പതിവ് പൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും തുടക്കമാകും

തമിഴ്നാട് ആവശ്യമായ വെള്ളം നൽകാത്തതിനാൽ പെരിങ്ങൽകുത്ത് ഡാമിലെ വൈദ്യുത ഉത്പാദനം പ്രതിസന്ധിയിലാകുമെന്ന് കെ

ബി അധികൃതർ അറിയിച്ചു

എല്ലാ വർഷവും ഫെബ്രുവരി സെപ്തംബർ മാസങ്ങളിൽ അപ്പർ ഷോളയാർ ഡാമിൽ നിന്നും കേരള ത്തിന് തമിഴ്നാട് വെള്ളം നൽകണമെന്നാണ് കരാർ എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തമിഴ്നാട് കരാർ പാലിക്കുന്നില്ലെന്നും അധികൃതർ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി സം ഘടിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് ആരംഭിക്കും മൂന്നു ദിവസങ്ങ ളിലായി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലേയും നാല് സ്ഥല ങ്ങൾ കേന്ദ്രീകരിച്ച് തോൽപ്പാവക്കൂത്ത് പ്രദർശനം നടക്കും

പകൽ സമയങ്ങളിൽ നൂൽപ്പാവക്കൂത്തും രാത്രിയിൽ നിഴൽ പ്പാവക്കൂത്തുമായി രാവിലെ ഒമ്പത് മുതൽ രാത്രി എട്ടു വരെയാണ് പ്രദർ ശനം രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോവുന്ന തെരഞ്ഞെടുപ്പിൽ എ ല്ലാ ഭിന്നശേഷിക്കാരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും നല്ല ഭര ണം അടുത്ത തലമുറക്ക് കൂടെ ലഭൃമാവണമെങ്കിൽ ബാഹൃപ്രേരണ കൂ ടാതെ സ്വതന്ത്രവും സ്വകാര്യവുമായി വോട്ടു ചെയ്യുകയാണ് വേണ്ടതെ ന്നും സിനിമാ താരം മാമുക്കോയ പറഞ്ഞു കോഴിക്കോട് ഭിന്നശേഷി സൌഹൃദ മാതൃക തെരഞ്ഞെടുപ്പ് ബ്രോഷർ വീഡിയോ ഓഡിയോ എ ന്നിവയുടെ പകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം വയനാട്ടിലെ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ ശ്രീധന്യ സുരേഷിനെ ഫേസ്ബുക്കിലൂടെ വംശീ യമായി അധിക്ഷേപിച്ചയാൾക്കെതിരെ പട്ടിക ജാതി പട്ടിക വർഗ കമ്മീ ഷൻ കേസെടുത്തു